തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് ഭരണഘട്ടനാ സ്ഥാപനങ്ങളെ തകർക്കുകയാണെന്ന് ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഈ മാസം തന്നെ തീരുമാനിക്കാൻ രാഹുൽഗാന്ധി നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലയിലെ എല്ലാപഞ്ചായത്തുകളും അഴിമതിരഹിത ജനസൌഹൃദമാ കുന്നതിന്റെ പ്രഖ്യാപനം ഇന്ന് പ്രശസ്ത കഥകളി കലാകാരി ചവറ പാറുക്കുട്ടി അന്തരിച്ചു അഖിലേന്ത്യാ പൊലീസ് ഫുട്ബോൾ കിരീടം സി ആർ പി എഫിന്

രാജ്യത്ത് എൻ ഡി എ ഗവൺമെന്റ് നാലര വർഷത്തിനിടെ കോടിക്കണ ക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗതാഗതം ഹോട്ടൽ അടിസ്ഥാനസൌകര്യവികസന മേഖലകൾ ഉൾപ്പെടെ അസം ഘടിത ഗവൺമെന്റ് മേഖലകളിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതെന്നും പ്രധാ നമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ വ്യോമസേന ശക്തമായി കാണാൻ കോൺഗ്രസ് ആഗ്ര ഹിക്കുന്നില്ലെന്ന് റഫാൽ ആരോപണങ്ങൾക്ക് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു

കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയടക്കു പിരിച്ചുവിട്ട ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് കേരളത്തിലെ സുഹൃത്തുക്കൾ ഇക്കാര്യം ഓർമ്മിക്കുന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഉൾപ്പെടെ പരസ്പരം കണ്ടുകൂടാത്തവർ സഖ്യത്തിന് ഒരുങ്ങുകയാണെന്നും വിശാലസഖ്യം അധികാര ത്തിലെത്താൻ പോകുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭരണഘടനാ സ്ഥാപ നങ്ങളെ കോൺഗ്രസ് തകർക്കുകയാണെന്നും മോദി ആരോപിച്ചു മോദിയെയും ബി ജെ പിയെയും കുറ്റപ്പെടുത്തുമ്പോൾ ചില ആളുകൾ ഇന്ത്യയെ കുറ്റപ്പെടുത്തു കയാണ് സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് പ്രതിപക്ഷത്തിന് നഷ്ടമായെന്നും പ്രധാ നമന്ത്രി പറഞ്ഞു

രാജ്യത്തിനകത്തായാലും പുറത്തായാലും സത്യം മാത്രമാണ് പറയുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ കൊള്ളയടിച്ചവർ നരേന്ദ്ര മോദിയെ ഭയക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ മഹാസഖ്യം തകരുമെന്ന ബി ജെ പി ആരോപണം ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത മുൻ പ്രധാനമന്ത്രി എച്ച് ബി ദേവഗൌഡ നിരാകരിച്ചു തന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഗവൺമെന്റ് മഹാസഖ്യത്തിന് ഭരണം നടത്താൻ കഴി യുമെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസംഗം തെറ്റായ കഥകളും വളച്ചൊടിച്ച വസ്തു തകളുമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ദേശ സുരക്ഷയെകുറിച്ച് സംസാരി ക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമില്ലെന്നും റഫാൽ ഇടപാടിനെയും അതിർത്തി കളിലെ ആക്രമണങ്ങളിൽ സൈനികർ വീരമൃത്യു വരിച്ചതിനെയും കുറിച്ച് അദ്ദേഹം മറുപടി നൽകണമെന്നും പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല ന്യൂഡൽഹി യിൽ ആവശ്യപ്പെട്ടു തൊഴിൽ വിദേശ നിക്ഷേപം കാർഷിക വേതനം തുടങ്ങി യവ സംബന്ധിച്ച കണക്കുകൾ ഗവൺമെന്റ് വെളിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി ബി ഐ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപ നങ്ങളെ ഗവൺമെന്റ് നശിപ്പിക്കുകയാണെന്നും സുർജേവാല ആരോപിച്ചു

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സ്ഥാനാർത്ഥികളെ ഈ മാസം തന്നെ തീരുമാനിക്കണമെന്ന് കോൺ ഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി ന്യൂഡൽഹിയിൽ ചേർന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തി ലാണ് നിർദ്ദേശം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ രണ്ടും മൂന്നും തവണ പരാജയപ്പെട്ടവരെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്ക് മുൻഗണന നൽകാനും രാഹുൽഗാന്ധി നിർദ്ദേശിച്ചതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ

തെരഞ്ഞെടുപ്പ് പ്രചാരണം മാന്യതയോടെയായിരി ക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടു പ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ നാളെ കെ പി സി സി പ്രസിഡന്റുമാരെയും കോൺഗ്രസ് നിയമസഭാകക്ഷിനേതാക്കളെയും കാണും നാലേ മുക്കാൽ വർഷത്തെ മോദി ഭൂരണം ജനങ്ങൾക്ക് നിരാശമാത്ര മാണ് നൽകിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെ ടുത്തി ബംഗാളിലെയും ഡൽഹിയിലെയും ത്രിപുരയിലെയും സി പി ഐ എം നേതാക്കൾ ജനാധിപത്യ മതേതര ഐക്യത്തിനായി അണിനിരക്കുമ്പോൾ കേരള ത്തിലെ സി പി ഐ എം ഘടകം അതിന് തുരങ്കം വയ്ക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സിയുടെ ജനമഹായാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നൽകിയ സ്ഥീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുല്ല പ്പള്ളി ഇന്ന് ബാലുശ്ശേരി കൊയിലാണ്ടി എന്നിവിടങ്ങളിലെ സ്ഥീകരണത്തിനുശേഷം വൈകിട്ട് മുതലക്കുളത്ത് ജില്ലയിലെ പര്യടനം സമാപിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഫലപ്രദമായും വേഗ ത്തിലും നടപ്പാക്കുന്നതിന് പിന്തുണ തേടി കേന്ദ്ര കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു പദ്ധതിപ്രകാരം അർഹരായ ചെറുകിട കർഷക കുടുംബങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റുകളാണ് അവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഓൺലൈൻ പോർട്ട ലിൽ ഉൾപ്പെടുത്തിയാൽ അർഹരായ കുടുംബങ്ങൾക്ക് ആനുകൂല്യത്തിന്റെ ആദ്യ ഗഡു കൈമാറാനാകുമെന്ന് കത്തിൽ പറയുന്നു

ഗവൺമെന്റും ദേവസം ബോർഡും ക്ഷേത്രം വിടുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധ ദിനം ആചരിക്കുന്നത് ശബരിമലവിശ്വാ സികളോട് കൊടിയ വഞ്ചന കാണിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചു വിടാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

ഇതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ മന്ത്രി എ

പ്രശസ്ത കഥകളി കലാകാരി ചവറ പാറുക്കുട്ടി അന്തരിച്ചു

വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചവറയിലെ സ്വകാര്യ ആശുപത്രി യിലായിരുന്നു അന്ത്യം ഭൌതികശരീരം ചവറയിലെ നാടൃധർമ്മിയിൽ ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും

കഥകളിരംഗത്ത് സ്ത്രീകൾ കടന്നുവരാൻ മടിച്ചിരുന്ന കാലഘട്ടത്തിൽ കഥകളി പഠനം ആരംഭിച്ച് അരനൂറ്റാണ്ടോളം വേദിയിൽ നിറഞ്ഞ കലാകാരിയായിരുന്നു അവർ പുരുഷ വേഷങ്ങളിൽ ഉൾപ്പെടെ പ്രാഗൽഭൃം തെളിയിച്ച അവർ പ്രശസ്ത കഥകളി കലാകാരന്മാർക്കൊപ്പം കഥകൾ അവതരി പ്പിച്ചിട്ടുണ്ട്

കഥകളിയിലെ സജീവ സ്ത്രീസാന്നിധ്യമായിരുന്ന അവർ സ്ത്രീവേഷങ്ങൾക്കൊപ്പം പുരുഷ വേഷങ്ങളിലും തിളങ്ങിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു

മലപ്പുറത്ത് നിലവിൽ ചാമ്പ്യന്മാരായ ബി എസ് എഫിനെ സഡൻ ഡത്തിൽ ഏഴിനെതിരെ എട്ടുഗോളുകൾക്ക് തോല്പിച്ചാണ് സി ആർ പി എഫ് ജേതാക്കളായത്

നെയ്വേലിയിൽ നടക്കുന്ന മത്സരത്തിൽ തമിഴ്നാടിനെ സമനിലയിൽ കുരു ക്കി ഗ്രൂപ്പിൽ ഒന്നാമതായാണ് കർണ്ണാടകയുടെ ഫൈനൽ റൌണ്ട് പ്രവേശം

രാവിലെ തെലങ്കാനയും പുതുച്ചേരിയും തമ്മിലാണ് മത്സരം കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് എ ഡിവിഷൻ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും ജാർഖണ്ഡ് ഉത്തർപ്രദേശി നെയും ഹരിയാന മിസോറാമിനെയും നേരിടും കാഞ്ഞങ്ങാട് നെഹ്രു കോളേജിൽ കണ്ണൂർ സർവകലാശാലാ കലോ ത്സവത്തിലെ നൃത്തേതര മത്സരങ്ങളിൽ പയ്യന്നൂർ കോളേജ് ജേതാക്കളായി

ഒരുപിടി മണ്ണുമായി ആലപ്പാട്ടേക്ക് എന്ന മുദ്രാവാക്യവുമായി മറ്റു ജില്ലകളിൽനിന്നും എത്തുന്ന അനുഭാവികൾ മണ്ണ് ആലപ്പാട്ട് തീരത്ത് നിക്ഷേപിക്കും പ്രൊഫഷണൽ സ്റ്റുഡന്റ് സമ്മിറ്റ് മറ്റന്നാൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ധർമ്മം അനുഷ്ഠിക്കാതെ വ്യക്തികൾക്കോ രാജ്യത്തിനോ ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സ്എുട്ടം ചെയ്തെ ടുത്തതാണ് ഭാരതത്തിന്റെ സത്തയെന്നും നാഗർകോവിൽ സന്നിധാനം മഠാധിപതി ശ്രീധരസ്വാമി പറഞ്ഞു പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷ ത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

കൊല്ലത്ത് ആരംഭിക്കും അഖില ഭാരതീയ രാഷ്ട്രീയ മഹാസംഘം സംഘടന സെക്രട്ടറി മഹേന്ദ്രകപൂർ ഉദ്ഘാടനം ചെയ്യും

ഇന്നലെയുണ്ടായിതീ പിടുത്തത്തിൽ കമ്പനിടുകത്തി നശിക്കുകയും ഒരു തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളൽ എൽക്കുകയും ചെയ്തിരുന്നു

ന്നതുമായി ബന്ധപ്പെട്ട് ജോലികൾ നടക്കുന്നതിനാൽ ബംഗളുരു എറണാകുളം ബംഗളുരു ഇന്റർസിറ്റി എക്സ്പ്രസ് മറ്റുന്നാൾ റദ്ദാക്കിയതായി റെയിൽവെ അറി യിച്ചു

ഇയാളിൽ നിന്നും രണ്ടു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു

രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു

ഉച്ചയ്ക്ക് മന്ത്രി ഇ

ലയവും സംയുക്തമായി നാളെ കോഴിക്കോട്ട് അന്ധക്ഷേമപക്ഷാചരണം നടത്തു മെന്ന് ഭാരവാഹികൾ അറിയിച്ചു